എസ് ആർ ടി

അടിയന്തര വൈദ്യസഹായം നൽകാനും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി

ഏപ്രിൽ ആദൃവാരത്തിൽ രൂപീകരിക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി രാംവിലാസ് പസ്വാൻ

മൂന്നാമത്തെ സ്വകാരൃ ട്രെയിനായ കാശി മഹാകാൽ എക്സ്പ്രസ് ഇന്നു മുതൽ സർവ്വീസ് ആരംഭിക്കും

പാകിസ്ഥാന് മുന്നറിയിപ്പുമായി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിലെ അംഗരാജ്യങ്ങൾ രംഗത്ത്

എസ് ആർ ടി

അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു

പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു അപകടം ഏഴ് പേർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു

പലരുടെയും നില ഗുരുതരമായതിനാൽ മരണസംഖൃ ഇനിയും ഉയരാൻ സാധൃതയു്

അപകടത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാരായ പെരുമ്പാവൂർ സ്വദേശി വി

ഗിരീഷും പിറവം സ്വദേശി വി

പാലക്കാട് എറണാകുളം തൃശ്ശൂർ എന്നിവിടങ്ങളിൽ നിന്നുളളവരാണ് മരിച്ചവരിലേറെയും ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ കൃഷി മന്ത്രി വി എസ് സുനിൽകുമാർ എന്നിവരോട് തമിഴ്നാട്ടിലെത്തി ആശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നിർദേശം നൽകി മന്ത്രിമാർ സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടു തമിഴ്നാട് സർക്കാരുമായും തിരുപ്പൂർ ജില്ലാ കലക്ടറുമായും സഹകരിച്ച് സാധ്യമായ എല്ലാ ആശ്വാസ നടപടികളും കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

പരിക്കേറ്റവരെ കേരളത്തിലെത്തിച്ച് ചികിത്സിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി

എഞ്ചിനീയർമാർക്കും മുറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർക്കുമൊപ്പമാണ് പദ്ധതിയുടെ പുരോഗത്ച് വിലയിരുത്താൻ ജനറൽ സിംഗ് ഉത്തരാഖണ്ഡിൽ എത്തുന്നത്

ഹിമാലയത്തിലെ നാല് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രാ സംവിധാനം മെച്ചപ്പെടുത്തുകയും സുരക്ഷിതമാക്കുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം

ഇതോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അരുണാചൽപ്രദേശിലെയും മിസോറാമിലെയും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും രു സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുന്നെ് ശ്രീ

ഇരു സംസ്ഥാനങ്ങളിലെയും ജനങ്ങളുടെ രാജ്യസ്നേഹം പ്രശംസനീയമാണെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

എസ് പ്രസിഡന്റ് ട്രംപും ന്യൂഡൽഹിയിൽ വിപുലമായ ചർച്ച നടത്തും പ്രതിരോധം വ്യാപാരം ഉൾപ്പെടെയുള്ള പ്രധാന മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നടപടികൾ ചർച്ചയാകും

ഇന്ന് ഉച്ച തിരിഞ്ഞ് വരാണാസ്മിയിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ ശിവരാത്രി ദിനമായി നാളെ പുലർച്ചെ ഇൻഡോറിൽ എത്തിച്ചേരും ഉന്നത് നിലവാരമുളള സേവനത്തിനു പുറമേ ഓംകാരേശ്വർ ടൂർ പാക്ക്ജും മഹാകാൽ എക്സ്പ്രസ് വാഗ്ദാനം ചെയ്യുന്നതായി ക്ക് ആർ സി റ്റി സി ചീഫ് റീജണൽ മാനേജർ അശ്വിനി ശ്രീപ്പിച്ച്തവ ആകാശവാണിയോട് പറഞ്ഞു കഴിഞ്ഞ ഞായ്റാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് മഹാകാൽ എക്സ്പ്രസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്

മഹാകാൽ എക്സ്പ്രസിന്റെ എല്ലാ കോച്ചുകളും മൂന്നാം ക്ലാസ്സ് എ സി സംവിധാനത്തിലുളളതാണ്

ഭീകരവാദ സംഘടനകൾക്ക് ധനസഹായം ലഭ്യമാകുന്നത് തടയുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഈ വർഷം ജൂണിനകം പാകിസ്താൻ പൂർത്തിയാക്കണമെന്ന് തുർക്കി ഒഴികെയുളള രാഷ്ട്രങ്ങൾ കർശനമായ മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാനുമായി അടുത്ത ചങ്ങാത്തം പുലർത്തുന്ന ചൈനയും സൌദി അറേബ്യയും ഇക്കാര്യത്തിൽ ഇന്ത്യ അമേരിക്ക യൂറോപ്യൻ രാഷ്ട്രങ്ങൾ കൈകോർത്തു

അതുവരെ പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽ തന്നെ നിലനിർത്താനും തീരുമാനമായി

കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയവും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയും മേളയിൽ പങ്കെടുക്കുന്നു്

ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ പ്രതിനിധികളും മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗം മരുന്നുകൾക്കുള്ള ചേരുവകളുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ചർച്ച ചെയ്തു ചൈനയിൽ നിന്നുള്ള ചേരുവകളുടെ ലഭൃത പ്രതിസന്ധിയിലാകുന്ന സാഹചരൃത്തിൽ മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നതിന് പിന്നാലെയാണ് നിതി ആയോഗ് സി ഇ ഒ അമിതാഭ് കാന്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്

ചൈനയിൽ നിന്നു നാട്ടിലെത്തിയ വിദ്യാർത്ഥികളോട് തിരിച്ചെത്തിയില്ലെങ്കിൽ പ്രവേശനം നഷ്ടപ്പെടുമെന്ന് സർവകലാശാല അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ചൈനീസ് നയതന്ത്ര പ്രതിനിധിയുമായി ഇന്ത്യൻ ആരോഗൃ സെക്രട്ടറി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നം ഉന്നയിച്ചു ഇതേ തുടർന്ന് സർവകലാശാലകളിൽ പുതിയ സെമസ്റ്റർ അധ്യയനം ആരംഭിക്കുന്നത് മാറ്റിവച്ചതായി ചൈനീസ് നയതന്ത്ര കാര്യാലയം കേന്ദ്ര ആരോഗൃ മന്ത്രാലയത്തെ അറിയിച്ചു വിദ്യാർത്ഥികൾക്ക് അതത് സർവകലാശാലകളിൽ നിന്നും ഇത് സംബന്ധിച്ച അറിയിപ്പ് ലഭിക്കും

പരമ്പരാഗത വ്യവസായ പദ്ധതികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം